സിന്ധു ജപ്പാന്റെ അകാനെ യാമാഗുച്ചിയെ ഇന്ന് നേരിടും

കൂടുതൽ വിവരങ്ങളുമായി ശ്രീലത വോയിസ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം വൃവസായ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട ജി

മന്ത്രിതല സംഘം നടത്തിയ ശുപാർശകൾ യോഗം ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്

റുപേ കാർഡിനും ഭീം ആപ്പിനും പ്രോത്സാഹനം നൽകുന്നത് സംബന്ധിച്ച് ബീഹാർ ഉപമുഖ്യമന്ത്രി സുശീൽകുമാർ മോദിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സംഘം ഇന്നലെ ശുപാർശ നൽകിയിരുന്നു

ഷോപ്പിയാൻ ജില്ലയിലെ കിലോറ ഗ്രാമത്തിൽ ഇന്നലെ രാത്രിയോടെയായിരുന്നു ഏറ്റൂമുട്ടൽ തുടങ്ങിയത് ഭീകരർ ഒളിച്ചു കഴിയുന്നുപ്പെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിക്ക് തുടർന്നാണ് ഏറ്റുമുട്ടലുണ്ടായത് ഷോപിയാനിലെ മാലിക്ഗു്ണ്ട് സ്വദേശി ഉമർ നസീർ മാലിക്ക് എന്ന ഭീകരന്റെ മൃതദേഹമാണ് കണ്ടെത്തിയതെന്ന് സുരക്ഷാ സേന അറിയിച്ചു

ഭീകരരെ ചോദ്യാ ചെയ്തുവരികയാണ്

ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മലയാളിയുമായ കെ

ജോസഫ് മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി ഒഡീഷ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിനീത് ശരൺ എന്നിവരെയും സുപ്രീം കോടതി ജഡ്ജിമാരായി നിയമിച്ചിരുന്നു

മഴ ലഭ്യത കുറയുമെന്ന ധാരണ തിരുത്തി ഈ മാസവും അടുത്ത മാസവും മൺസൂൺ മഴ ലഭ്യത സാധാരണ നിലയിലായിരിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ബീഹാർ ഝാർഖണ്ഡ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ ഇതുവരെ നല്ല മഴ ലഭിച്ചതായും കേന്ദ്രം വിലയിരുത്തി

സംസ്ഥാന തലസ്ഥാനമായ ഡെറാഡൂണിലും സമീപ പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കു ഭീഷണിയുണ്ടായി

മോശം അവസ്ഥയിലുള്ള കെട്ടിടങ്ങളിൽ നിന്നും ജനങ്ങളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിപാർപ്പിക്കാൻ മുഖ്യമന്ത്രി യോഗി ആതിഥ്യനാഥ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി

ഇന്ന് വൈകിട്ട് ഹൈദരാബാദിൽ എത്തുന്ന രാഷ്ട്രപതി ഹൈദ്യാബ്ബാദ് ഐ

ടിയുടെ ബിരുദ ദാന സമ്മേളനത്തെ അഭിസംബോഗ്രന്റ് ചെയ്യും നാളെ തമിഴ്നാട്ടിലെത്തുന്ന രാഷ്ട്രപതി കാവേരി ആശ്ചുപത്രിയിൽ ചികിൽസയിൽ കഴിയുന്ന ഡി

തിങ്കളാഴ്ച തിരുവനന്ത്പുരത്ത് സംസ്ഥാന നിയമസഭയുടെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച് ഫെസ്റ്റിവൽ ഓഫ് ഡമോക്രസി ഉദ്ഘാടനം ചെയ്യും

കേന്ദ്ര ജലകമ്മീഷൻ ചീഫ് എഞ്ചിനീയർ ഗുൽഷൻരാജ് അദ്ധ്യക്ഷനായ സമിതിയിൽ തമിഴ്നാട് പ്രതിനിധി കെ

പ്രഭാകർ കേരള ക്രതിനിധി ടിങ്കു ബിസ്വാൾ എന്നിവർ സന്ദർശനത്തിന് നേതൃത്വം നൽകുന്നു സംഘം മുഖ്യ ഡാം ബേബി ഡാം സ്പിൽവേ എന്നിവിടങ്ങൾ സന്ദർശിക്കും

ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി എ

ധർമ്മറെഡ്സിയുടെ നേതൃത്വത്തിലുളള ഏഴംഗ സംഘമാണ് സന്ദർശനം നടത്തുന്നത്

വിവിധ പ്രദേശങ്ങളിൽ രണ്ട് സംഘങ്ങളായാണ് സന്ദർശിക്കുക സംസ്ഥാന ദുരിതാശ്വാസ കമ്മീഷണറുമായി ചൊവ്വാഴ്ച വൈകിട്ട് സംഘം കൂടിക്കാഴ്ച നടത്തും എട്ടാം തീയതി മുതൽ വിപിധ ജില്ലകളിലെ ദുരിത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതി അവലോകനം ചെയ്യും ആലപ്പുഴ തിരുവനന്തപുരം പത്തനംതിട്ട ക്ട്രോട്ടയം ജില്ലകളിൽ ഒരു സംഘവും എറണാകുളം കോഴിക്കോട് ്രതൃശൂർ ജില്ലകളിൽ മറ്റൊരു സംഘവും സന്ദർശിക്കും

ജലസംഭരണിയിലേക്കുള്ള നീരൊഴുക്കും ദുർബലമായി

എല്ലാ മേഖലകളിലും മധ്യേഷ്യൻ രാജ്യമായ കിർഗിസ്ഥാനും ഇന്ത്യയുമായുള്ള ബന്ധം വ്യാപിപ്പിക്കുന്നതിനും സജീവമാക്കുന്നതിനുമുള്ള നടപടികൾ ഇരുവരും ചർച്ചു ചെയ്തു കസാഖ്സ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെയാണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീമതി സുഷമ കിഴക്കൻ കിർഗിസ്ഥാനിലെ ഇസിക്കുളിൽ എത്തിയത് കിർഗിസ്ഥാൻ വിദേശകാര്യമന്ത്രി അബ്ദിൽ ദേവ് മറ്റ് ഉന്നത നേതാക്കൾ എന്നിവരുമായി പ്രതിരോധം ശാസ്ത്ര സാങ്കേതികവിദ്യ ആരോഗൃരംഗങ്ങളിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി ചർച്ചകൾ നടത്തും

ഇന്നലെ നടന്ന കാർട്ടർ ഫൈനലിൽ മൂന്നാം നമ്പർ താരമായി സിന്ധു ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സെമിയിൽ പ്രവേശിച്ചത്